കൊച്ചി മംഗളൂരു പ്രകൃതി വാതക പൈപ്പ് ലൈൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിനു സമർപ്പിച്ചു

ഇന്ത്യൻ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ ജൂറി ചെയർമാനായി അർജന്റീനിയൻ ചലച്ചിത്രകാരൻ പാബ്ലോ സെസറിനെ തെരഞ്ഞെടുത്തു

ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു മുംബൈ പോരാട്ടം

കേന്ദ്രമന്ത്രി ധർമേന്ദ്ര പ്രധാൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക ഗവർണർ വാജുഭായ് വാല കർണാടക മുഖ്യമന്ത്രി ബി

കേരളത്തിലെയും കർണാടകത്തിലെയും ജനജീവിതം സുഗമമാക്കാൻ പദ്ധതി സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

മലിനീകരണം കുറക്കാനും തൊഴിലവസ്ത്രങ്ങൾ വർധിപ്പിക്കാനും പദ്ധതി സഹായിക്കുമെന്ന് പ്ര്യാനമ്പ്രി പറഞ്ഞു

ഈ ജില്ലകളിലെ വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് പ്രകൃതിവാതകം എത്തിക്കാനും പൈപ്പ്ലൈനിന് കഴിയും പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ധന വിലയിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ

കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്ര സിംഗ് തോമർ വ്യവസായ വാണിജ്യ മന്ത്രി പിയൂഷ് ഗോയൽ വ്യൃഷ്ടസായ വാണിജ്യ മന്ത്രാലയ സഹമന്ത്രി സോം പ്രകാശ്ശ് ത്ത്ടങ്ങിയവർ ഇന്നലെ നടന്ന ചർച്ചയിൽ പങ്കെടുത്തു ഏത്രിഷേധത്തിനിടെ ജീവൻ നഷ്ടമായവരുടെ സ്മരണാർത്ഥം രണ്ട് മിനിറ്റ് മൌനാചരണം നടത്തി കർഷകരുടെ പ്രശ്ന്നങ്ങൾ പരിഹരിക്കാനായി തുറന്ന നിലപാടാണ് കേന്ദ്രസർക്കാർ ്നുള്ളതെന്നും പ്രശ്ന പരിഹാരത്തിനായി ഇരുവിഭാഗങ്ങളും നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്നും ശ്രീ തോമർ പറഞ്ഞു തുറന്ന ചർച്ചകളിലൂടെ സാധൃമായ ഒരു പരിഹാരം അടുത്ത വട്ട ചർച്ചയിൽ കാണാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കൃഷി മന്ത്രി വ്യക്തമാക്കി

കോഴിക്കോടും ആലപ്പുഴയും രണ്ടു വീതവും കോട്ടയം കണ്ണൂർ ജില്ലകളിൽ ഓരോരുത്തർക്ക് വീതവുമാണ് വൈറസ് ബാധ കണ്ടെത്തിയത്

കോവിഡ് മഹാമാരിയുടെയും അതുമായി ബന്ധപ്പെട്ട യാത്രാനിയന്ത്രണങ്ങളുടെയും പശ്ചാത്തലത്തിൽ എയർ ബബിൾ സംവിധാനത്തിലൂടെയാണ് സന്ദർശനം സജ്ജീകരിച്ചിരിക്കുന്നത് ഈ മാസം ഏഴ് വരെ നീളുന്ന സന്ദർശനത്തിൽ ശ്രീലങ്കൻ പ്രസിഡണ്ട് ഗോതബയ രജപക് സെ പ്രധാനമന്ത്രി മഹിന്ദ രജപക്സെ വിദേശകാര്യമന്ത്രി ദിനേഷ് ഗുണവർധന തുടങ്ങിയവരുമായി ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും

ജനിതകമാറ്റം സംഭവിച്ച കൊറോണ വൈറസ് വലിയതോതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി ട്ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്

ഈ വാക്സിൻ ഇറക്കുമതി ചെയ്യാനുള്ള അനുവാദം ബംഗ്ലാദേശ് മരുന്ന് നിയന്ത്രണ സമിതി ബെക്സിംകോ ഫാർമസ്യൂട്ടിക്കൽസിന് നൽകി മുപ്പത് ദശലക്ഷം വാക്സിൻ ഡോസുകൾ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യയിലെ സെറം ഇൻസ്റ്റിറ്യൂട്ടുമായി ബെക് സിംകോ കരാറിൽ ഏർപ്പെട്ടിരുന്നു

കോവിഡ് മഹാമാരിക്ക് അന്തൃം കുറിക്കാൻ ലോകം പരിശ്രമിക്കുന്ന ഇക്കാലത്ത് വാക്സിൻ നിർമാണത്തിന്റെയും വികസനത്തിന്റെയും നേതൃസ്ഥാനത്തേക്ക് ഇന്തൃ എത്തുന്നത് സന്തോഷകരമാണെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു

ശ്രീലങ്കയിൽ നിന്നുള്ള പ്രസന്ന വിധാനേജ് ഓസ്ട്രിയക്കാരൻ അബുബക്കർ ഷാകി ഇന്ത്യൻ ചലച്ചിത്രകാരൻ പ്രിയദർശൻ ബംഗ്ലാദേശിലെ റുബായത്ത് ഹൊസൈൻ എന്നിവരാണ് ജൂറിയിലെ മറ്റ് അംഗങ്ങൾ

ഇന്നലെ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് ഹൈദരാബാദ് ചെന്നൈയിൻ എഫ്സിയെ തോൽപ്പിച്ചിരുന്നു

സൂറത്ത് നഗരത്തിലെ കുടിയേറ്റ തൊഴിലാളികളുടെ സമഗ്ര വിവര ശേഖരം സൃഷ്ടിക്കുകയാണ് സെല്ലിന്റെ ലക്ഷ്യം

കൈത്തണ്ടയ്ക്കേറ്റ പരിക്ക് കാരണമാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ നിന്ന് രാഹുൽ പുറത്തായത്